രാജൃതാൽപരൃമുള്ള വിഷയ്ങ്ങൾ ചർച്ചകളിൽ ഉയർത്തണമെന്ന് സ്പീക്കർ എം

പാർലമെന്ററി കാര്യമന്ത്രി നരേന്ദ്രസിംഗ് തോമർ സഹമന്ത്രി വിജയ് കോൺഗ്രസ് കക്ഷി നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഗോയൽ റാംവിലാസ് പാസ്വാൻ തൃണമൂൽ നേതാവ് സുധീപ് ബന്ദോപാധ്യായ ഭർതൃഹരി മഹ്തബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാവിലെ ഒൻപതു മണിക്ക് ധനകാര്യമന്ത്രി ഡോ

പ്രളയാനന്തര നവകേരള നിർമ്മാണത്തിനുള്ള പ്രത്യേക പാക്കേജ് കെ

ആർ ടി സി പ്രതിസന്ധി മറികടക്കാനുള്ള പുനരുദ്ധാരണ പാക്കേജ് അട ക്കമുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടായേക്കും

ഇന്ത്യയുടെ ഐകൃത്തിനും പരമാധികാരത്തിനും മുറിവേൽപ്പിക്കാനുള്ള പാക്കിസ്ഥാന്റെ ഏറ്റവും ഒടു വിലത്തെ നീക്കമാണിതെന്നും വിദേശകാരൃ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ബന്ധങ്ങൾ സംബന്ധിച്ച നിയത്തിന്റെ എല്ലാ നിബന്ധനകളും പാക്കിസ്ഥാൻ ലംഘിച്ചതായി ശ്രീ

ഭീകരവാദവും ഇന്ത്യാ വിരുദ്ധതയും ഔദ്യോഗികമായി പ്രോത്സാഹിപ്പിക്കുകയാണ് പാക്കിസ്ഥാനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

പാക്കിസ്ഥാന് ഒരു അവ കാശവാദവും ഉന്നയിക്കാനാവില്ല

വിജയ് ഗോഖലെ പാക്കിസ്ഥാൻ ഹൈക്കമ്മീഷണറോട് ആവശ്യപ്പെട്ടു

തിങ്കളാഴ്ചയായിരുന്നു രണ്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നത്

ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എം

എ ഹരിചന്ദ് മിദ്ദയുടെ നിര്യാണത്തിൽ തുടർന്നാണ് ജിണ്ടിൽ വോട്ടെടുപ്പ് വേണ്ടിവന്നത്

പി സ്മാന്റ്ാർത്ഥി ലക്ഷ്മൺ സിങ്ങിന്റ നിര്യാണത്തെ തുടർന്നാണ് നിയമ്പ്പൂട്ടാ ് തിരഞ്ഞെടുപ്പിൽ രാംഗഡ് സീറ്റിലേയ്ക്കുള്ള വോട്ടെടുപ്പ് മാറ്റിവച്ചത്

അകന്നു കഴിയുന്ന ഭർത്താവ് യു കെ യിലെ മാഞ്ചസ്റ്റർ കുടുംബ കോടതിയിൽ നൽകിയ വിവാഹ മോചന കേസിൽ സ്റ്റേ ആവശ്യപ്പെട്ട് ഒരു സ്ത്രീ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി കേസ് പരിഗണിച്ച ജസ്റ്റിസ് ആർ

ധനുകയാണ് ഇക്കാര്യം വിശദമാക്കിയത്

പട്ടിക പരിശോധിച്ച് പുതുതായി പേരു ചേർക്കാനും മേൽവി ലാസം മാറ്റാനും വെബ്സൈറ്റ് വഴി ഇന്നു മുതൽ അപേക്ഷിക്കാം

രാഷ്ട്രീയ പാർട്ടികളുമായും സംസ്ഥാന തീർഖ്ഞ്തടുപ്പ് ഉദ്യോഗസ്ഥരുമായും പോലീസ് സേനയുമായും സംഘ്ം ഇന്ന് ചർച്ചകൾ നടത്തും സംസ്ഥാനത്തെ ക്രമസമാധാന് നില വിലയിരുത്തുന്നതിനായി ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പ്രോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ഇവർ കൂടിക്കാഴ്ചകൾ നടത്തുന്നു്ണ്ട് ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഡി

പി എന്നിവരുമായി നാളെയാണ് ചർച്ചകൾ ഝാർഖണ്ഡിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സംഘം ഇന്നലെ റാഞ്ചിയും സന്ദർശിച്ചിരുന്നു

വിദ്യാർത്ഥികളുടെ പൊതു പരീക്ഷകൾ അടുത്തമാസം മുതൽ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ജനവികാരം കണക്കിലെടുത്താണ് സമരം പിൻവലിക്കുന്നതെന്ന് തമിഴ്നാട് അധ്യാപക സംഘടനകളുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥ സംഘടനകളുടെയും സംയുക്ത ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും രാഷ്ട്രീയ നേതാക്കളുടെ അഭ്യർത്ഥനയും സമരം പിൻവലിക്കുന്നതിന് പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അവർ അറിയിച്ചു

ജനക്ഷേമം മുൻനിർത്തി സമരം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസാമി സംയുക്ത സമര സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നു

ഇന്ന്ലെങ് രാവിലെ ഡബ്ബിങ്ങിനായി കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ എത്തിയ ് ശ്രീനിവാസന് അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശു്പിത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു

അഫ്ഗാനിസ്ഥാനിൽ ഒത്തുത്തൂർപ്പ് ്ചർച്ചകൾക്കായി നിയോഗിക്കപ്പെട്ട യു എസ് പ്രത്യേക പ്രതിയിക്കു സൽമായ് ഖാലിൽസാദ് ഖത്തറിൽ കഴിഞ്ഞയാഴ്ച താലിബ്സ്റ്റൂമായി നാലാംവട്ട ചർച്ചകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുക്യായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം തുടരുകയാണ് എങ്കിലും അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞു

ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയും താലിബാനും തമ്മിൽ സമാധാന കരാറിന്റെ കരട് തയ്യാറാക്കിയതായും യു

അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മൂന്നു മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് ക്വാപ്റ്റൻ വിരാട് കോലിയ്ക്ക് ബി സി സി ഐ വിശ്രമം അനുവദിച്ചതിനാൽ ഇന്നത്തെ ഏകദിനത്തിൽ കളിക്കുന്നില്ല രോഹിത് ശർമ്മയാണ് കോലിക്ക് പകരം ഇന്ത്യയെ നയിക്കുന്നത്

രാജ്യത്തെ മികച്ച കഴിവുള്ളവരെ കണ്ടെത്തുന്നതിന് ഫലപ്പെട്ടമായ രീതിയാണ് ഇതെന്ന് വ്യക്ത മാക്കിയാണ് നിയമം പ്രഖ്യാപിച്ചത്

പുതിയ നിയ്ക്ക് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബലൃത്തിൽ വരുമെ ങ്കിലും അടുത്ത സാമ്പത്തിക വർഷം മുതലാണ് ഇലക്ട്രോണിക് രജിസ്ട്രേ ഷൻ ആരംഭിക്കുക

സ്പെയിനുമായുള്ള മത്സര പരമ്പരയ്ക്ക് ശേഷമാണ് അയർലണ്ടുമായുള്ള രണ്ടു മത്സരങ്ങളുള്ള പരമ്പര

ജെ

അധ്യക്ഷൻ അമിത്ഷാ കാൺപൂരിൽ ബി ജെ

യുടെ ബൂത്ത് തല പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് അമിത്ഷാ ഇത്തരത്തിൽ പറഞ്ഞത്

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന് വിദേശ സ്ക്ന്ദർശന്ം നടത്താൻ സൂപ്രീംകോടതി അനുമതി നൽകി